വനിതാവിഭാഗം ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ അന്നുറാണി ഫൈനലിൽ കടന്നു

ആയുഷ്മാൻ ഭാരത് മൊബൈൽ ആപ്സിക്കേഷനും ആയുഷ്മാൻ ഭാരത് സ്മാർട്ട് ആപ്പ് ഗ്രാന്റ് ചലഞ്ചും ചടങ്ങിൽ ശ്രീ

ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കളുമായും പ്രധാനമന്ത്രി സംവദിക്കും

ആയുഷാമാൻ ഭാരത് പദ്ധതിയുടെ നടത്തിപ്പിലെ വെല്ലുവിളികളെക്കുറിച്ച് പരിപാടി ചർച്ച ചെയ്യും ന്യൂസ് ഡെസ്ക് ആകാശവാണി

സീറ്റ് പങ്കിടൽ സ്റ്റ്ബന്ധിച്ച അന്തിമതീരുമാനവും സ്ഥാനാർത്ഥി പട്ടികയും ഉടൻ തന്നെ പ്രഖ്യാ്പിക്കുമെന്നും ഇരുപാർട്ടികളും അറിയിച്ചു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ ബഞ്ച് ഇന്നലെ ഇതു സംബന്ധിച്ച ഹർജികൾ ജസ്റ്റിസ് എൻ

ജസ്റ്റിസുമാരായ എസ്

കൌൾ ആർ സുബാഷ് റെഡ്ഡി ബി

ഗവായി സൂര്യകാന്ത് എന്നിവരാണ് അഞ്ചംഗ ബഞ്ചിലെ മറ്റ് ജഡ്ജിമാർ

രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി പശ്ചിമബംഗാളിൽ എത്തിയത്

കേന്ദ്രമന്ത്രി മഹ്ദേന്ദ്രനാഥ് പാണ്ഡേ ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം

നാലോ അതിൽ കൂടുതലോ തൊഴിലാളികൾ ഉള്ള സംരംഭങ്ങളിൽ ക്രെട്ടിലുടമയ്ക്ക് അപ്രന്റീസുകളെ നിയമിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു അപ്രന്റീസുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കമ്പനികളിൽ കർശ്വരുമായി പാലിക്കുന്നുണ്ടെന്ന് സംസ്ഥാനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും ശ്രീ

മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിക്ക് നേരത്തെ അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചു സർവകക്ഷി സംഘവും ഇന്ന് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരെ കാണും

ഒക്ടോബർ മൂന്നിന് ബത്തേരിയിലെ സമരപന്തലിലെത്തും ഇന്ന് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി രാഹുൽഗാഡി കൂടിക്കാഴ്ച നടത്തും അതേസമയം യുവജന നേതാക്കൾ ബത്തേരിയിൽ നടത്തിവരുന്ന നിരാഹാര സമരം ഏഴ് ദിവസത്തിലേക്ക് കടന്നു സമരത്തിന് പിന്തുണയുമായി നിരവധി സംഘടനകളാണ് നിത്യവും സമരപ്പന്തലിൽ എത്തുന്നത്

വേഗത്തിൽ വന്ന ബസ് മഴയെ തുടർന്ന് കീഴ്മേൽ മറിയുകയായിരുന്നു എന്ന് ജില്ലാ പോലീസ് അധികൃതർ അറിയിച്ചു

സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി

കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ഇന്നലെ പട്നയിൽ സംസ്ഥാനത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി നിലവിലെ സ്ഥിതി വിശേഷങ്ങൾ അവലോകനം ചെയ്തു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ടെലിഫോണിൽ വെള്ളപ്പൊക്കം സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചുറിഞ്ഞു സംസ്ഥാനത്തിന് ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്രം നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ അയൽ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായിട്ടുണ്ട് എങ്കിലും റെയിൽ റോഡ് ഗതാഗതം ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുകയാണ് ബല്ലിയ ചപ്രാ റൂട്ടിൽ പാളത്തിലെ തകരാറുകൾ കാരണം ചില ട്രെയിനുകൾ റദ്ദാക്കുകയും മറ്റ് ചിലത് വഴി തിരിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്

ഇത്തരത്തിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് അന്നുറാണി

യോഗ്യത റൌണ്ടിൽ സ്വന്തം ദേശീയ റെക്കോർഡ് അന്നു മറികടന്നു യോഗ്യത മൽസരങ്ങളിൽ അഞ്ചാമതായി ഫിനിഷ് ചെയ്ത അന്നു നിലവിലെ ലോക റെക്കോർഡ് ജേതാവ് ബാർബോറ സ്പോട്ടാകോവയെക്കാൾ മുന്നിലാണ് ഇപ്പോഴുള്ളത്

ഇതോടനുബന്ധിച്ച് ഉന്നത നിലവാരമുള്ളതും നിസ്വാർത്ഥവുമായ സേവനങ്ങൾക്കായി പുനരർപ്പണം ചെയ്തുകൊണ്ട് നഴ്സിംഗ് ഓഫീസർമാർ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പ്രതിജ്ഞ ചൊല്ലും മിലിറ്ററി നഴ്സിംഗ് സർവ്വീസ് അഡീഷണൽ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ദേശീയ യുദ്ധസ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കും

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണ കരാർ കഴിഞ്ഞ ജൂണിൽ പുതുക്കിയതിലൂടെ സാമ്പത്തിക ബന്ധം അഭിവൃദ്ധിപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു

വൃക്തികൾ ഗ്രൂപ്പുകൾ സംരംഭകർ കമ്പനികൾ എന്നിവയ്ക്കായും വിദ്യാർത്ഥികൾക്കായും പ്രത്യേക മൽസരങ്ങൾ നടക്കും പണമിടപാടുകളിലെ സുരക്ഷിതത്വം ഓൺലൈൻ പണമിടപാടുകൾ ഓൺലൈൻ തർക്കപരിഹാര മാർഗ്ഗങ്ങൾ ലളിതമായ കെ

സി തുടങ്ങിയ വിഷയങ്ങളിൽ ആശയങ്ങൾ കൊണ്ടുവരാവുന്നതാണ്

ജയ് ഭഗവാൻ ബോറിയയെ ഭരണസമിതിയുടെ എല്ലാ അധികാരങ്ങളോടും കൂടി ഭരണച്ചുമതല ഏൽപ്പിക്കാനും റിസർവ്വ് ബാങ്ക് തീരുമാനിച്ചു

റിസർവ്വ് ബാങ്ക് നിർദ്ദേശങ്ങൾ ആറ് മാസത്തേക്ക് നിലനിൽക്കും

ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കുമ്പ്യൂണിക്കേഷന്റെ അധികചുമതലയും അദ്ദേഹം വഹിക്കും

പ്രമുഖ നടൻ ദർശൻ ജാരിവാല മേള ഉദ്ഘാടനം ചെയ്യും